സുരക്ഷയ്ക്ക് ചെലവഴിക്കുന്ന പണം വികസനത്തിനായി തിരിച്ചുവിടാൻ കഴിയണമെന്നും പ്രധാനമന്ത്രി

ഉത്തരകൊറിയൻ പ്രസിഡന്റ് കിം ജോംഗ് ഉന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുചിനുമായുള്ള ആദ്യ ഉച്ചകോടി ചർച്ചകൾ ആരംഭിച്ചു

ഇതോടെ സുരക്ഷയ്ക്കായി ചെലവഴിക്കുന്ന തുക ജനക്ഷേമത്തിനായി ചെലവഴിക്കാനാകുമെന്നും ശ്രീ മോദി പറഞ്ഞു ബീഹാറിലെ ദർഭംഗയിൽ ഒരു പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇത് നവഭാരതമാണെന്നും തീവ്രവാദത്തിൽ ഏർപ്പെടുന്നവരെയും അതിന് പിന്തുണ നൽകുന്നവരെയും പിന്തുടർന്ന് അവരെ ഇല്ലായ്മ ചെയ്യുമെന്ന് പ്രധാനമന്ത്രി താക്കീത് നൽകി വളരെ ചുരുക്കം സീറ്റുകളിൽ നിന്ന് മാത്രം മത്സരിക്കുന്നവർ പ്രധാനമന്ത്രിയാകാനുള്ള പോലും മോഹവുമായി കാത്തിരിക്കുകയാണെന്നും ശ്രീ നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടി

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിലെ ദർഭംഗയിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു ഉത്തർപ്രദേശിലെ ബന്തയിലെ തിരഞ്ഞെടുപ്പ് പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുന്ന അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷം വാരാണസിയിൽ നടക്കുന്ന റോഡ് ഷോയിലും പങ്കെടുക്കും

ജെ പി ദേശീയ അദ്ധ്യക്ഷൻ അമിത് ഷാ ഉത്തർപ്രദേശിൽ ഗാസിക് പൂരിലും ഉന്നാവോയിലും തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ അഭിസംബോധന ചെയ്യും

കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി രാജസ്ഥാനിലെ ജാലോർ അജ്മീർ കോട്ട എന്നിവിടങ്ങളിൽ പൊതുജനങ്ങളുമായി സംവദിക്കും പാർട്ടി ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധി വധ്ര ഉത്തർപ്രദേശിലെ ജലൌനിൽ പ്രചരണത്തിൽ പങ്കെടുക്കും ബി ജെ പി ക്ക് വേണ്ടി പ്രകാശ് ജാവ്ദേക്കർ വസുന്ധര രാജെ അവിനാഷ് റായി ഖന്ന സുധാംഷു ത്രിവേദി എന്നീ നേതാക്കളും പ്രചാരണ രംഗത്തുണ്ട്

പി അധൃക്ഷ മായാവതി ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂർ കനൌജ് തുടങ്ങിയ മേഖലയിലെ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ അഭിസംബോധന ചെയ്യും

ജമ്മുകാശ്മീരിലെ കുൽഗാം ജില്ലയിലെ അനന്ത്നാഗ് മണ്ഡലവും ജനവിധി തേടും

നാഗാലാന്റിലെ വോഘ ജില്ലയിലെ ഒരു പോളിംഗ് സ്റ്റേഷനിൽ വീണ്ടും പോളിംഗ് നടക്കും

പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരാണസിയിൽ മൽസരിക്കുന്നതിന് നാളെ നാമനിർദ്ദേശപത്രിക സമർപ്പിക്കും

നാളെയാണ് പത്രിക പിൻവലിക്കുന്നതിനുള്ള അവസാന ദിനം

മേഖലയിൽ തീവ്രവാദികളുടെ സാന്നിധൃമുണ്ടെന്ന രഹസൃ വിവരത്തെ തുടർന്ന് കഴിഞ്ഞ രാത്രി നടത്തിയ തിരച്ചിലിലാണ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടത് ബിജ ്ബെഹാരയിൽ കുറച്ചുകാലമായി തീവ്രവാദികൾ സജീവമായിരുന്നെന്നും മേഖലയിലെ ജനങ്ങൾക്ക് ഭീഷണി ഉയർത്തിയിരുന്നതായും ഡി ജി പി ദിൽ ബാഗ് സിംഗ് ആകാശവാണിയോട് പറഞ്ഞു നിരവധി ആക്രമണങ്ങൾക്ക് കാരണക്കാരായ തീവ്രവാദികളെ തുരത്തിയതിന്റെ ആശ്വാസത്തിലാണ് മേഖലയിലെ ജനങ്ങൾ

വി

നടപ്പ് പൊതു തിരഞ്ഞെടുപ്പിൽ ഓരോ അസംബ്ലി മണ്ഡലത്തിലെയും അഞ്ച് പോളിംഗ് പ്ലൂത്തുകളിലെ വി വി പാറ്റ് സ്ലിപ്പുകൾ ഒത്തുനോക്കണമെന്ന് ക്യോടത്രി തിരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകിയിരുന്നു ന്റേരിത്തെ ഒരു പോളിംഗ് ബൂത്തിൽ സ്ലിപ്പുകൾ ഒത്തുനോക്കാനായിരുന്നു തീരുമാനം എന്നാൽ ഒന്നിൽ നിന്ന് അഞ്ചിലേയ്ക്കുള്ള പ്രദ്ധന യുക്തമല്ലെന്ന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബ്ബു് നായിഡു ഹർജിയിൽ ആരോപിച്ചു

തീവ്രവാദ സംഘടയായ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അറസ്റ്റ് ഉത്തർപ്രദേശിലെ ചില വീടുകളിലാണ് എൻ ഐ എ തിരച്ചിൽ നടത്തിയത് കഴിഞ്ഞ വർഷം ഡിസംബർ മുതൽ എൻ ഐ എ നടത്തുന്ന തുടർച്ചയായ അഞ്ചാം റെയ്ഡാണിത്

കൊറിയൻ ഉപദ്വീപിലെ ആണവ പ്രശ്നം ഇരുനേതാക്കളും ചർച്ച ചെയ്യും ചർച്ചകൾക്കായി കിം സ്വകാര്യ ട്രെയിനിൽ ഇന്നലെ റഷ്യയിലെത്തി ഹനോയിയിൽ ഈ വർഷം ആദ്യം അമേരിക്കൻ പ്രസിഡന്റുമായി നടത്തിയ ആണവ ചർച്ച പരാജയപ്പെട്ടതിനാൽ പുചിന്റെ പിന്തുണ തേടാനാണ് കിം റഷ്യയിലെത്തിയത്തെന്ന് കരുതപ്പെടുന്നു കൊറിയൻ ഉപദ്വീപിലെ സ്ഥിതിഗതികൾ ആടുത്തിടെ സന്തുലിതമായിട്ടുണ്ടെന്നും ഈയൊരു പ്രവണത ഊജട്ടിയുറപ്പിക്കാൻ സാധ്യമായ സഹായങ്ങൾ റഷ്യ ചെയ്യുമെന്നും പുച്ചിന്റെ വിദേശ നയകാര്യ സഹായി യൂറി ഉഷകോവ് പറഞ്ഞു ഉത്തര കൊറിയയുടെ ആണവ പദ്ധതി അവസാനിപ്പിക്കാൻ നടന്ന ചർച്ചകളിൽ റഷ്യ മുമ്പ് പങ്കെടുത്തിരുന്നു

ആക്രമണത്തെ കുറിച്ച് അന്വേഷണം പുരോഗമിക്കവെ ശ്രീലങ്കയിലെ സുരക്ഷാ സാഹചരൃം സാവധാനം സാധാരണ നിലയിലേക്ക് എത്തിയിട്ടുണ്ട് ആക്രമണവുമായി ബന്ധപ്പെട്ട് രാജ്യത്തുടനീളം നിരവധി പേരെ അറസ്റ്റ് ചെയ്തു

ഒരു സ്ത്രീ ഉൾപ്പെടെ ഒൻപത് ചാവേറുകളാണ് ആക്രമണം നടത്തിയതെന്ന് ശ്രീലങ്കൻ പ്രതിരോധമന്ത്രി പറഞ്ഞു അക്രമികളിൽ ഭൂരിഭാഗവും സമ്പന്ന കുടുംബങ്ങളിൽ നിന്നുള്ളവരും ഒരാൾ ബ്രിട്ടനിൽ വിദ്യാഭ്യാസം ചെയ്തയാളുമാണ് സംശയിക്കുന്നവരിൽ പലരും മുമ്പ് വിദേശങ്ങളിലേക്ക് യാത്ര് ചെയ്തിട്ടുണ്ട് ഇവരുടെ ഐ എസ് ഐ എസ് ഉൾപ്പെടെയുള്ള വിദേശ തീവ്രവാദ ഗ്രൂപ്പുകളുമായുള്ള ബന്ധം അന്വേഷിച്ച് വരികയാണ്

കരാർ അനുസരിച്ച് ആഫ്രിക്ക മദ്ധ്യ പൂർവ്വമേഖല ഏഷ്യ തുടങ്ങിയ മേഖലകളിലെ ഭീകരവാദവും അതിതീവ്രവാദവും അമർച്ച ചെയ്യുന്നതിൽ ശ്രദ്ധ ചെലുത്തുമെന്ന് പ്രസ്താവനയിൽ പറയുന്നു

മെഡൽ നിലയിൽ നാലാമതായാണ് ഇന്ത്യൻ മത്സരത്തിൽ നിന്നും മടങ്ങുന്നത് ബഹറിൻ ഒന്നാംസ്ഥാനവും ചൈനയും ജപ്പാനും യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങളും നേടി

കിങ്സ് ഇലവൻ പഞ്ചാബിനെയാണ് ബാംഗ്ലൂർ പരാജയപ്പെടുത്തിയത് ആദ്യം ബാറ്റ് ചെയ്ത ബാംഗ്ലൂർ എ